മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയത്തിലേയ്ക്ക് ബീഹാറിൽ ആർ

ഡി

നിയമസഭയിൽ പ്രതിപക്ഷ് വാക്കൌട്ട് കർഷകരുടെ ഒരാനുകൂല്യവും നിഷ്പേധിച്ചിട്ടില്ലെന്ന് ഗവൺമെന്റ് ഷുഹൈബ് വധക്കേസിൽ സി ബി ഐ

ഹൈക്കോടതി ഡിപ്പിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ

സഹകരിക്കില്ലെന്ന് ബി ഡി ജെ

ബംഗ്ലാദേശിനെ നേരിടും

ഉപതെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലെ അരാരിയയിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി മുന്നിലാണ് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് നിയമസഭ മണ്ഡലങ്ങളിൽ ഒന്നിൽ ബി ജെ ്പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നാൽ ജഹനാബാദ് നിയമസഭാ മണ്ഡലത്തിൽ ആർ ജെ ഡിയ്ക്കാണ് ജയം

സുനിൽ കുമാർ അറിയിച്ചു ജി എസ് ടി യും നോട്ട് നിരോധനവും നടപ്പാക്കിയിട്ടും സംസ്ഥാനത്ത് കർഷകരുടെ ഒരു ആനുകൂലൃവും ഗവൺമെന്റ് നിഷേധിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്

അടിയന്തിര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടു സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ ഏഴ് ശതമാനത്തോളം കുറവുണ്ടായത്യായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അറിയിച്ചു പോലീസ് സേനയുടെ അംഗബലം ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ബി ഐ

ദൃശ്യങ്ങൾ ഒഴികെയുള്ള മറ്റു രേഖകൾ നൽകും ദൃശ്യങ്ങൾ നൽകണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനിക്കുമെന്നും സെഷൻസ് കോടതി വൃക്തമാക്കി

രഹസ്യ വിചാരണ അതിവേഗം പൂർത്തിയാക്കണമെന്നും നടി ഹർജിയിൽ ആവശ്യപ്പെട്ടു

കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ച നിയമോപദേശം തേടിയതെന്തിനാണെന്ന് കോടതി ആരാഞ്ഞു നടപടി വൈകിയതിനാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ ആവശ്യപ്പെട്ടുക്കൊണ്ടുള്ള നടപടി ഹർജി പരിഗണിക്കുകയായിരുന്നു കോട്ടതി

എൻ ഡി എ യിലെ ബി ജെ പി ഇതര കക്ഷികളുടെ യോഗം വിളിക്കുമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പാർട്ടിയോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യസഭാ സീറ്റ് താനോ തന്റെ പാർട്ടിയോ ആവശ്യപ്പെട്ടിട്ടില്ല ഇതിന്റെ പേരിൽ തന്നെയും പാർട്ടിയെയും അധിക്ഷേപിച്ചുവെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം കിട്ടാതെ ബിജെപിയുമായി സഹകരിക്കില്ലെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും വേഗം നിറവേറ്റിയാൽ പഴയപോലെ എൻ ഡി എ ശക്തമായി ചെങ്ങന്നൂരിൽ ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ടടടടടടടടടടടടടടട അതിന്യൂനമർദ്ദം തിരുവനന്തപുരത്ത് തെക്കു പടിഞ്ഞാറായി രൂപം കൊണ്ട അതിന്യൂനമർദ്ദം വടക്കോട്ട് നീങ്ങുകയാണെന്നും പൂർണ്ണമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ സുദേവൻ ആകാശവാണിയോട് പറഞ്ഞു

ഉച്ചയ്ക്ക് ശ്രേഷം ചാറ്റൽ മഴയുണ്ടായി

അതിനാൽ കടലിലേക്കു പോയ ബോട്ടുകൾ പലതും കരയ്ക്കടുപ്പിച്ചു

എന്നാൽ മൂതാക്കര വാടി പ്രദേശങ്ങളിലെ ചെറുവള്ളങ്ങൾ മുന്നറിയിപ്പ് അവഗണിച്ച് തീരക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതായി ഫിഷറീസ് അധികൃതർ പറഞ്ഞു

കൊളംബോയിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ശ്രീലങ്കയോട് തോറ്റ ഇന്ത്യ തുടർന്നുള്ള രണ്ടു മത്സരങ്ങളിലും വിജയം നേടിയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാനായാൽ ഇന്ത്യയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞായറാഴ്ചത്തെ ഫൈനൽ കളിക്കാനാകും

ബ്രിട്ടണിലെ കേംബ്രിഡ്ജിലുള്ളൂ സ്വസതിയിലായിരുന്നു അന്ത്യം

അദ്ദേഹം രചിച്ച സമയത്തിന്റെ ് ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന ശാസ്ത്രഗ്രന്ഥം ഒരു കോടിയിലേറെ പ്രതികളാണ് വിറ്റഴിഞ്ഞത്

ദേശീയപാതയ്ക്കായുള്ള സർവേ ജോലിയ്ക്കായി എത്തിയ അധികൃതർക്കുമുന്നിൽ ഇവർ ആത്മഹത്യാഭീഷണി ഉയർത്തി കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ

എഴുതിയ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളേ എന്ന നാടകഗാനത്തിന് സംഗീതം നൽകികൊണ്ട് സംഗീതസംവിധാന രംഗത്തേക്ക്

തുടർന്ന് യേശുദാസും ജയചന്ദ്രനും ഉൾപ്പെടെ അനുഗൃഹിത ഗായകരുടെ ശബ്ദത്തിൽ പെരിയാറേ